സന്ദർശനാർത്ഥം യാത്ര തിരിച്ചു

തെക്കൻ ജില്ലകളിൽ മഴ സജീവം

ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ

അർജന്റീനയുടെ മത്സരത്തിനായി ആവേശത്തോടെ ആരാധകർ

ഗ്രീസ് സുരിനാം ക്യൂബ എന്നീ രാഷ്ട്രങ്ങളിലാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്

സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഏദൻസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി ഗ്രീക്ക് പ്രസിഡന്റ് ക്രിപ്പാകോപിസ് പാവ്ലോ പൌലോസ് മുതിർന്ന ഉദ്യോഗസ്ഥർ ്രപ്പതിപക്ഷ നേതാക്കൾ എന്നിവരുമായി ഏദ്ദൻസിൽ അജ്ഞാതരായ സൈനികരുടെ ചർച്ച നടത്തും

ചൊവ്വാഴ്ച സുരിനാമിൽ എത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് ഡിസൈർ ഡെലാനോ ബൂട്ടേഴ്സുമായി ചർച്ച നടത്തും ആരോഗ്യം ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും

എഞ്ചിനീയറിംഗ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡ്രഗ്സ് ആന്റ് ഫാർമസ്യൂട്ടിക്കൽ എന്നീ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്നിട്ടുള്ളത്

ജില്ലാ ഭരണകൂടം ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഭക്ഷണസാധനങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്തു പ്രദേശത്താകെ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലാണ്

അതേസമയം തെക്കൻ ജില്ലകളിൽ കാലവർഷം സ്ജീവമാണ്

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇതു സംബന്ധിച്ച് അടുത്തിടെ ഉണ്ടായ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി കേന്ദ്ര ഗവൺമെന്റും മന്ത്രാലയങ്ങളും ഡിപ്പാർട്ട്മെന്റുകളും കേന്ദ്ര ഭരണപ്രദേശങ്ങളും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉദ്യോഗകയറ്റം നടപ്പാക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആന്റ ട്രെയിനിംഗ് ഒരു ഉത്തരവിൽ ആവശ്യപ്പെട്ടു

മുംബൈ പൂനൈ നാഗ്പൂർ നാസിക് ഔറംഗാബ്ലാദ് ഡിവിഷനുകളിലെ എല്ലാ ജൂനിയർ കോളേജുകളിലും ഒരു മാസത്തിനകം സംവിധാനം നടപ്പിലാക്കണം

ജമാ മസ്ജിദ് ഫത്തേപൂർ മസ്ജിദ് എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച ഈദ് ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു

ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമൂഹത്തിൽ ഇഴകൾ ശക്തമാക്കാൻ ഈ ദിനം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ന്യൂഡൽഹിയിൽ നിന്നുള്ള സംഘം തിങ്കളാഴ്ച യാത്രി തിരിക്കും

ഗ്രൂപ്പ് ഡി യിലെ ഐസ്ലാന്റാണ് എതിരാളി

ഗ്രൂപ്പ് ഡി യിൽ ക്രൊയേഷ്യ നൈജീരിയയുമായി ഏറ്റുമുട്ടും

ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൌൺസിലിൽ പരിഷ്കരണത്തിനായി സ്വീകരിക്കേണ്ട നയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്തു

നാസയുടെ റെക്കോഡിന് ഉടമയായ പെഗ്ഗി അവസാന ബഹിരാകാശ യാത്ര നടത്തി ഒരു വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്

സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് ഇവരുടെ താമസസ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത് മൊറോക്കയിൽ ജനിച്ച അമ്മയ്ക്ക് ആറ് വർഷവും ഒമ്പത് മാസത്തേയും തടവ് ശിക്ഷയാണ് കോട്ടതി പ്രിധിച്ചത്

വേർപെട്ടുപോയതായി ഔദ്യോഗിക മെക്സിക്കോയിൽ നിന്ന് അനധികൃതമായി അതിർത്തി കടന്ന് എത്തുന്ന വ്യക്തികളെ പിടികൂടുന്നതിന് ട്രംപ് ഭരണകൂടം നടത്തിയ നടപടികളിൽപെട്ട മുതിർന്നവർ കുടുംബങ്ങളിലെ തടവിലാക്കപ്പെട്ടതോടെയാണ് കുട്ടികൾ ഒറ്റപ്പെട്ടത്